കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി യു എ പി എ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കി മുത്തലാഖ് ബിൽ ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം വിമാനത്താവളം സ്ഥകാര്യവൽക്കരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി

സ്ത്രീകൾക്ക് അവർ തെരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനം നൽകുമെന്ന് മന്ത്രി ഡോക്ടർ കെ

പ്രവർത്തന മൂലധനക്കുറവ് പരിഹരിക്കുന്നതിനും നഷ്ടം നികത്താനും ശേഷി വികസന പദ്ധതികൾ നടപ്പാ ക്കുന്നതിനും ബാങ്ക് കടം കുറയ്ക്കാനുമാണ് ഭൂമി വിൽക്കാൻ ഫാക്ട് തീരുമാനിച്ച ത് സംസ്ഥാനങ്ങളുടെ സബ്സിഡി പദ്ധതികൾക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ ഉപയോഗിക്കുന്നതിന് നിയമത്തിൽ മാറ്റം വരുത്താനും മന്ത്രിസഭ തീരുമാനിച്ചതായി ജാവ്ദേക്കർ പറഞ്ഞു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം യു എ പി എ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി

കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങി പ്പോയി മുസ്ലിം ലീഗ് പ്രമേയത്തെ എതിർത്ത് വോട്ടുചെയ്തു വ്യക്തിയെ ഭീകര നായി പ്രഖ്യാപിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അധികാരം നൽകുന്ന തടക്കം മാറ്റങ്ങളാണ് ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭീകരവാദം മുളയിലേ നുള്ളിക്കളയാൻ ഇത് അനിവാര്യമാണെന്ന് ചർച്ചയ്ക്ക് മറുപ്പടി പറഞ്ഞ ആഭ്യന്തര മന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഒരാൾക്കെതിരെയും നിയമം ദുരുപയോഗം ചെയ്യി ല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭേദഗതിയിലൂടെ ഗവണ്മെന്റ് ഫെഡറൽ ഘടനയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മുത്തലാഖ് ബിൽ ലോക്സഭ ഇന്ന് പ്രിഗണിച്ച് പാസ്സാക്കും സഭയിൽ ഹാജരാവാൻ ബി ജെ പി എം പി മാർക്ക് വിപ്പ് നൽകി

ലോക്സഭയിൽ ആവശ്യപ്പെട്ടു

് ് ് ് ് ് ് ് ് ് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്ന കാര്യ ത്തിൽ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ അറിയിച്ചു തിരുവനന്തപുരം ഉൾപ്പെടെ ആറ് വിമാന ത്താവളങ്ങൾ പാട്ടത്തിന് നൽകാൻ ഗവൺ മെന്റ് കഴിഞ്ഞ വർഷം ത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇതിൽ മൂന്ന് വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം വിമാ നത്താവളം സ്വകാര്യവൽക്കരിക്കരുതെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് നൽകിയി ട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയെ കാണുമെന്നും വ്യോമ യാന മന്ത്രി അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം അംഗീകരിക്കണ മെന്ന് എ

ആന്റണി സഭയിൽ ആവശ്യപ്പെട്ടു

ഈ കമ്പനിയിൽ അദാനിയെ ഓഹരി പങ്കാളിയാക്കുന്ന കാര്യം ഇപ്പോൾ ഗവൺമെന്റിന് മുന്നിലില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ജലീൽ പറഞ്ഞു

അടുത്ത് മാസം പരിശീലന പരി പാടികൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് കുടുംബശ്രീ അംഗങ്ങൾ വനിതാ സംഘ ങ്ങൾ വീട്ടമ്മമാർ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾ തുടങ്ങിയവർക്ക് ഇത് മികച്ച അവസരമാണെന്ന് മന്ത്രി പറഞ്ഞു യു ഡി എഫ് സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു തിരുവനന്തപുരം യൂനിവേഴ്സിറ്റി കോളജിലെ അക്രമവും ക്രമക്കേടും സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക പിഎസ് സി പരീക്ഷയിലെ തട്ടിപ്പ് സിബിഐ അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം രാവിലെ ആറിന് തുടങ്ങിയ ഉപരോധം ഉച്ചക്ക് ഒന്നിന് അവ സാനിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ ഉപരോധം ഉദ്ഘാടനം ചെയ്യും കർണ്ണാടകയിൽ ഗവൺമെന്റ് രൂപീകരണ കാര്യത്തിൽ കരുതലോടെ മുന്നോട്ട് പോകാൻ ബി ജെ പി തീരുമാനം ഗവൺമെന്റ് രൂപീകരണത്തിന് ധൃതി കാണിക്കേണ്ടതില്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചത്

കേന്ദ്ര നേതൃത്വമായിരിക്കും തുടർനടപടികൾ സ്വീകരിക്കുകയെന്ന് അവർ പറഞ്ഞു അതേ സമയം ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കാൻ കേന്ദ്ര നേതൃത്വ ത്തിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്ന് ബി

സംസ്ഥാന അധ്യ ക്ഷൻ ബി

ഏതുസമയവും നിയമ സഭാകക്ഷിയോഗം ചേർന്ന് ഗവർണറെ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥാനാർത്ഥികളെ പിൻവലി ക്കില്ലെന്ന നിലപാടിൽ ഇരുവിഭാഗങ്ങളും ഉറച്ചു നിൽക്കുന്ന തിനാൽ യു ഡി എഫിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇരുവിഭാഗം നേതാക്കളുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇന്നലെ രാത്രി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല ക്വോറം തികഞ്ഞില്ലെങ്കിലും ഇന്ന് തിരഞ്ഞെടുപ്പു നടക്കുമെന്ന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്

യു ഡി എഫിലെ ധാരണ പ്രകാരം കേരളാ കോൺഗ്രസ് എമ്മിന് അവസരം നൽകാൻ കോൺഗ്രസിലെ സണ്ണി പാമ്പാടി രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പു വേണ്ടി വന്നത്

അറസ്റ്റിൽ നെടുംകണ്ടം പൊലീസ് സ്റ്റേഷനിലെ മുൻ എ എസ് ഐ റോയ് പി വർഗീസ് സി

ഒ ജിതിൻ കെ ജോർജ് ഹോം ഗാർഡ് കെ എം ജെയിംസ് എന്നിവരെയാണ് അനേഷണ സംഘം പിടി കൂടിയത് ഇതോടെ പിടിയിലായ പൊലീസുകാരുടെ എണ്ണം ഏഴായി

ലീഗിന്റെ നടത്തിപ്പിന് ഗവൺമെന്റ് മേൽനോട്ടത്തിൽ കമ്പനി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ടൂറിസം മന്ത്രി ധനമന്ത്രി ടൂറിസം സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി കെടിഐഎൽ ചെയർമാൻ എന്നിവർ അംഗങ്ങളായാണ് കമ്പനി രൂപീകരിക്കുക വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തേ ക്ക് ആകർഷിക്കുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കു ന്നത്

നേവൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ ഇന്നും എറണാകുളം മലപ്പുറം ജില്ലകളിൽ നാളെയുമാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക

കൊള്ളപ്പ ലിശക്കാരെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാല ക്കാട് ജില്ലയിൽ വൻവിജയമായ ഈ പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കു ന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വൈദ്യുതി നിലയത്തിലെ വൈദ്യുതി ഉൽപാദനം മൂന്നിലൊന്നായി കുറച്ചു സംസ്ഥാനത്തെ ചെറുകിട നിലയങ്ങളിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണു മൂലമറ്റത്തെ വൈദ്യുതി ഉൽപാദനം കുറച്ചത് ചെറുകിട അണക്കെട്ടുകളിലെ ജലം പാഴാക്കാതെ പരമാവധി വൈദ്യുതി ഉൽപാദിപ്പി ക്കുന്നതിനാലാണ് വൻകിട പദ്ധതികളായ ഇടുക്കി ശബരിഗിരി ഇടമലയാർ ഷോളയാർ പള്ളിവാസൽ പദ്ധതികളിൽ വൈദ്യുതി ഉൽപാദനം കുറച്ചത്

ക്യാംപുകളിൽ ഒരെണ്ണം ഒഴിവാക്കി വെള്ളം ഇറങ്ങിയിനെ തുടർന്ന് ആളുകൾ വീടുകളിലേക്ക് തിരിച്ചുപോയതോടെ താവക്കര യു പി സ്കൂളിലെ ക്യാമ്പാണ് ഒഴിവാക്കിയത് നിലവിൽ ഗവ

ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജില്ലയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

പുതിയതായി മൂന്ന് ദുരിതാശ്വാസക്യാമ്പുകൾ തുറന്നു

രാഗാസ് സംഗീതോത്സവം സമാപിച്ചു ആദ്യ നിശാഗന്ധി സംഗീതപുരസ്കാര ങ്ങൾ ചടങ്ങിൽ പാറശ്ശാല ബി പൊന്നമ്മാൾ ഡോക്ടർ ടി

ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനിച്ചു

കല്ലട ജലസേചന പദ്ധതിയുടെ ജല വിനിയോഗക്ഷമത വർധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട ജലപരിപാലനം ഉറപ്പാക്കുന്നതിന് സാധ്യതകൾ ആരായാനുമായി നിയമസഭാ വിഷയ നിർണയ സമിതി ഇന്ന് കല്ലട ഡാം സന്ദർശിക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായ സമിതിയാണ് ഡാം സന്ദർശിക്കുന്നത്

റിസർച്ച് സെന്ററിന്റെ ഉന്നത വിദ്യാഭ്യാസ വെബ് പോർട്ടൽ ഗൃവർണർ പി സദാ ശിവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മാസിവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളുടെ വിവരങ്ങൾ സ്വയംപ്രഭ ഡി

ജില്ലയ്ക്ക് ചരിത്ര നേട്ടം

കാസർകോട്ട് പനി ബാധിച്ച് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചു

സ്കൂളിലെ അധ്യാപകൻ സിദ്ദീഖിന്റെ മക്കളായ സിദ്റത്തുൽ മുൻജഹാൻ ഷിനാസ് എന്നിവരാണ് ഇന്നലെ മരിച്ചത്

മാക്കുന്നതിനായി ഹരിതകേരളം ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന ബീക്കൺ മാതൃക സംബന്ധിച്ച് കോഴിക്കോട്ട് ശിൽപശാല സംഘടിപ്പിച്ചു മാലിന്യ നിർമാമർജ്ജന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പഞ്ചായത്തുകളെയും മുൻസിപ്പാലി റ്റികളെയും സജ്ജരാക്കുന്നതാണ് ബീക്കൺ മാതൃക

രേഖ സർവെയുടെ റിപ്പോർട്ട് മന്ത്രിമാരായ പ്രൊഫ

രവീന്ദ്രനാഥും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു പഴയ കാല ത്തെയും വർത്തമാന കാലത്തെയും അറിവുകൾ സംയോജിപ്പിച്ച് പുതിയ അറിവു കൾ സൃഷ്ടിക്കണമെന്ന് സി